രോഗമുക്ത്രാകുന്നവരുടെ എണ്ണവും വർധിക്കുന്നുണ്ട് അതേ സമ്യം ചില സംസ്ഥാനങ്ങളിൽ രോഗബാധ വർധിക്കുകയാണ്

പ്രതിദിനം മൂന്ന് ലക്ഷത്തിലധികം പേരാണ് രോഗമുക്തരാകുന്നത്

തിരുവനന്തപുരം മലപ്പുറം തൃശൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്

കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിനായി നഗരത്തിൽ ഹിന്ദുസ്ഥാൻ ഏയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഒരുക്കിയ ആശുപത്രിയും കേന്ദ്രമന്ത്രി സന്ദർശിക്കും

മൊഹാലിയിൽ പ്രതിരോധ സേനയുടെ മെഡിക്കൽ വിഭാഗം സി ഡാക്കുമായി ചേർന്ന് ഇ സഞ്ജീവനി പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ ഐസിയുവും വികസിപ്പിച്ചിട്ടുണ്ട്

തീവ്ര പരിചരണ വിഭാഗത്തിലെ കോവിഡ് രോഗികൾക്ക് നൽകിയ ഓക്സിജന്റെ മർദ്ദം താഴ്ന്നതിനെ തുടർന്നാണ് രോഗികൾ മരിച്ചത്

ഇന്തോനേഷ്യ യിലെ ജക്കാർത്തയിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടറുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇന്ന് ഇന്ത്യയിലെത്തി ഫ്രാൻസ് സിംഗപ്പൂർ ആംസ്റ്റർഡാം എന്നിവിടങ്ങളിൽ നിന്നും പ്രതിരോധ സാമഗ്രികൾ എത്തിക്കാനുള്ളി ശ്രമം തുടരുകയാണ്

എൽ എ മാരുടെ സത്യപ്രതിജ്ഞ യോടെ പതിനാറാമത് നിയമസഭാ സമ്മേളത്തിന് തുടക്കമായി

പിച്ചാണ്ടി മുമ്പാകെയാണ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ

അതേസമയം സ്പീക്കർ സ്ഥാനത്തേക്ക് നാളെ തെരഞ്ഞെടുപ്പ് നടക്കും

കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചാണ് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്

തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഗൌരിയമ്മയുടെ ഭൌതികശരീരത്തിൽ നാനാതുറകളിലുളളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല മന്ത്രിമാർ രാഷ്ട്രീയു നേതാക്കൾ എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എന്നിവരും അനുശോചനം രേഖപ്പെടുത്തി

ഗൌരിയമ്മയുടെ വിടവാങ്ങൽ കേരള രാഷ്ട്രീയത്തിൽ നികത്താകാനാത്ത വിടവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്

ആ നിലയ്ക്കുള്ള കവിതകൾ പോലും മലയാളത്തിൽ അവരെക്കുറിച്ചുണ്ടായി അത്യപൂർവം സ്ത്രീകൾ മാത്രം ഉന്നത വിദ്യാഭ്യാസത്തിനെത്തിയി രുന്ന ആദ്യകാലത്ത് നിയമവിദ്യാഭ്യാസം പൂർത്തിയാക്കാനും അവർക്ക് കഴിഞ്ഞു ഒന്നാം കേരള മന്ത്രിസഭയിൽ തന്നെ അംഗ മായ ഗൌരിയമ്മ കേരള കാർഷിക പരിഷ്കരണ നിയമം കൊണ്ടു വരുന്നതിൽ ശ്രദ്ധേയമായ പങ്ക് വഹിച്ചു രണ്ടാം ഇ എം എസ് മന്ത്രിസഭയിലും പിന്നീട് വന്ന എൽ

എഫ് യു

നിയമസഭാ സാമാജികയെന്ന നിലയിലും നീണ്ട നാൾ പ്രവർത്തിക്കാനായി

വ്യക്തി ജീവിതത്തിന് മുകളിൽ തന്റെ രാഷ്ട്രീയ നിലപാടിന് പ്രാധാന്യം നൽകിയ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ കരുത്തുറ്റ വനിതയാണ് വിടവാങ്ങുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആറാം തമ്പുരാൻ പൈതൃകം ആനച്ചന്തം അഗ്നിസാക്ഷി എന്നീ സിനിമകളിൽ അഭിനയിച്ചു

സാങ്കേതിക രംഗത്ത് ഇന്തൃ കൈവരിച്ച നേട്ടങ്ങൾക്ക് കൂടുതൽ പ്രോൽസാഹനം നൽകുന്നതിനാണ് മുതൽ സാങ്കേതികവിദ്യാ ദിനാചരണത്തിന് തുട്ക്കം കുറിച്ചത്

ഞായറാഴ്ച രാത്രിയോടെയാണ് പോർട്ട് ബ്ലെയറിലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് ബോട്ടിൽ നിന്നും അപായ സന്ദേശം ലഭിച്ചത്